മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഉത്തരവ് വന്നശേഷം തീരുമാനമെടുക്കുമെന്ന് ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ

താമസക്കാർ രാഷ്ട്രപതിക്കും പ്രധാന്മന്ത്രിക്കും നിവേദനം നൽകും താമസക്കാർക്ക് പിവിധ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ

കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു

മത്സരത്തിൽ ഇന്ത്യ എ ടീമിന് ഏഴ് വിക്കറ്റിന്റെ ജയം

ശശീന്ദ്രൻ പിഴയിളവിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിധിൻ ഗഡ്കരിയുടെ പ്രസ്താവന സ്വാഗതാർഹമെന്നും ഗതാഗതമന്ത്രി ആകാശവാണിയോട് പറഞ്ഞു

പി എസ് സി ആസ്ഥാനത്ത് സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമര്യ് ന്ടത്തുന്ന സാഹചര്യത്തിലാണ് ചർച്ചു

എ എസ് ഉൾപ്പെടെ എല്ലാ പരീക്ഷകൾക്കും മലയാളത്തിലും ച്ചോദ്യം വേണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം

സാംസ്കാരിക നായകർ ഉൾപ്പെടെ നിരവധി പേർ സമരപ്പന്തലിൽ എത്തിയിരുന്നു

എ മാർക്കും ഇ മെയിൽ വഴി ഹർജി അയയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഫ്ളാറ്റിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കുന്നത് ശരിയല്ലെന്നും തങ്ങളുടെ വാദം സുപ്രീംകോടതി കേട്ടില്ലെന്നും ഹർജ്ജിയിൽ ചൂിക്കാട്ടും ഫ്ളാറ്റുകൾ ഒഴിയണം എന്നാവശ്യപ്പെട്ട് മരട് നഗരസഭ നൽകിയ നോട്ടീസ് താമസക്കാർ കൈപ്പറ്റിയിട്ടില്ല

എം സംസ്മാൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി എടുക്കുന്നുതിന് പകരം ഫ്ളാറ്റ് പൊളിച്ചുമാറ്റാനുള്ള തീരുമാനം വന്ന്തോടെ ഫ്ളാറ്റിലെ താമസക്കാർ തെരുവാധാരമാകുന്ന വരാൻ പോകുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫ്ളാറ്റിലെ താമസക്കാർക്ക് മാനുഷിക പരിഗണന കൊടുക്കേ വിഷയമായി ഇത് മാറിയിരിക്കുകയാണ് അവരോട് അനുകമ്പ കാണിക്കുന്ന സമീപനം സ്വീകരിക്കണമെന്നും ശ്രീ

മരട് രമേശ് ചെന്നിത്തല മരടിലെ ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മാനുഷിക പരിഗണനയോടെ അനുഭാവ പൂർണ്ണമായ നിലപാട് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ്രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഫ്ളാറ്റ് ഉടമകൾ തെറ്റുകാരല്ല ഫ്ളാറ്റുകൾ നിർമ്മിച്ചവരും അതിന് അനുമതി നൽകിയവരും വരുത്തി വച്ച തെറ്റിന് ഫ്ളാറ്റിലെ താമസ്സുക്കാരെ ശിക്ഷിക്കുന്നത് ശരിയല്ല അതിനാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തിരമായി പ്രശ്നത്തിൽ ഇടപെടണം

ഡി എഫ് സ്ഥാനാർത്ഥി ടോം ജോസ് എൽ

എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ എൻ

എ സ്ഥാനാർത്ഥി എൻ ഹരി എന്നിവർ വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്

മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിനായി ഈ മാസം പതിനെട്ട് മുതൽ പാലായിൽ എത്തുന്നുണ്ട്

ഡി എഫ് പൊതുയോഗങ്ങൾക്കും തുടക്കമായി

ജോസഫ് വിഭാഗം ഇന്ന് പ്രത്യേക യോഗം ചേരുന്നുണ്ട്

എ സ്ഥാനാർത്ഥി എൻ

കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂപ്പത് ്കോടിയുടെ വർധനയാണ് ഈ വർഷം ഉണ്ടായത്

ഏറ്റവും കൂടുതൽ മദ്യ്ം വിറ്റത് ഇരിങ്ങ്ലക്കുടയിലാണ്

ഭരണപക്ഷമായ യു ഡി എഫ്

ജെ

ചർച്ചയിൽ പങ്കെടുത്തുവെങ്കിലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉായത് കൊച്ചി കോർപ്പറേഷനിൽ യു ഡി

ജെ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ

പിന്നീട് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സേവ്യർ മരിച്ചു മഴ ഇടുക്കി സംസ്ഥാനത്ത് ഇത്തവണത്തെ കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് പാലക്കാട് ജില്ലയിലാണ്

കെ റോസിയുടെ പേരിൽ ഫിലിം സൊസൈറ്റി ആരംഭിച്ച് വിമൺ ഇൻ സിനിമാ കളക്ക്ട്ടീവ്

കനകക്കുന്ന് കവാടത്തിൽ വൈകിട്ട് അഞ്ച് മണിമുതൽ പഞ്ചവാദ്യവും ചെണ്ടമേളവും ഉണ്ടാകും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറിന് ഷബ്നം റിയാസിന്റെ സൂഫി് സംഗീതവും ഏഴുമുതൽ പത്തുവരെ രവിശങ്കർ രാജലക്ഷ്മി അരവിന്ദ് വേണുഗോപാൽ അഖില സംഗീത് എന്നിവർ നയിക്കുന്ന ജോൺസൺ ഗാനാഞ്ജലിയും നടക്കും

സ്വർണവില കുറഞ്ഞു

പുരസ് കാരത്തിനായി കായിക മന്ത്രാലയം ശുപാർശ ചെയ്ത ഒമ്പതു പേരും വനിതകളാണ്